ജാഗ്രതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടായ്മകൾ ഒഴിവാക്കാനും നിർദ്ദേശം

സംവിധാനങ്ങൾ സജ്ജമാക്കി

ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ആരെയും സംശയത്തോടെ കാണില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ

ഉന്നാവോ കേസിലെ ഇരയുടെ പിതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുൻ എം

മറ്റ് രോഗങ്ങൾ ഉള്ളതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ ചികിൽസ തുടരുന്നു

പ്രധാന്മുന്ത്രി നരേന്ദ്രമോദി സ്ഥിതി നിരന്തരം വിലയിരുത്തുന്നു് വിശദാംശങ്ങളുമായി ബിന്ദു

കേന്ദ്രസർക്കാർ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് കേന്ദ്രമന്ത്രിമാർ വരുംദിവസങ്ങളിൽ വിദേശ കാണുന്നത്

രോഗബാധയുടെ വ്യാപനം തടയുന്നതിന് വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

കെ ഓസ്ട്രേലിയ ബ്രസീൽ കാനഡ ജർമ്മനി ഇറ്റലി ജപ്പാൻ ന്യൂസിലാന്റ് സിങ്കപ്പൂർ ദക്ഷിണ കൊറിയ്യ എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലുള്ളത്

നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി

മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ഇന്നലെ ഉന്നതതല ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്തിയതായും മന്ത്രി പറഞ്ഞു

പാട്ന മെഡിക്കൽ കോളേജിലെയും ആശുപത്രിയിലെയും ഡോക്ടർമാരുടെ ലീവ് ഗവൺമെന്റ് അസാധുവാക്കി ബീഹാറിൽ ഇതുവരെ കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേപ്പാൾ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി

കുട്ടികളിലും സ്ത്രീകളിലും മുതിർന്ന പെൺകുട്ടികളിലുമുള്ള വളർച്ചാ മുരടിപ്പ് പോഷക കുറവ് വിളർച്ച ജനന സമയത്തെ ഭാരക്കുറവ് എന്നിവ കുറക്കാനാണ് അഭിയാൻ ലക്ഷ്യമിടുന്നത്

ദേശീയ പൌരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കെ കൈവശമില്ലാത്ത ഒരു രേഖകളും നിർബന്ധപൂർവ്വം ഹാജരാക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അടുത്ത മാസം ഒന്ന് മുതൽ ആറുമാസത്തിനുള്ളിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ പുതുക്കൽ നടപടികൾ പൂർത്തിയാകും ഡൽഹി കലാപത്തിന് ഉത്തരവാദികളായവരെ മത രാഷ്ട്രീയാഭിമുഖ്യം കണക്കാക്കാതെ ശിക്ഷിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു